ചർച്ച പാർലമെന്റിൽ പൂർത്തിയായി

ഗുജറാത്ത് ഹൈക്ക്ട്ടോടതിക്ക് വജ്ര ജൂബിലി ന് ചടങ്ങിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പങ്കെടുക്കും

രാജ്യത്തെ ഗ്രാമങ്ങളുടെയും കർഷകരുടെയും ദരിദ്ര വിഭാഗങ്ങളുടെയും വികസനത്തിന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൻമേൽ രാജ്യസഭയിൽ നടന്ന നന്ദിപ്രമേയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ ആവശ്യപ്പെട്ടു

ലോക്സഭയിലും ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തി നന്റ്ടി പ്രിക്യ്മേയ ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച്ച് രാജ്യസഭയിൽ മറുപടി നൽകും

അറുപത് വർഷം പൂർത്തിയാക്കിയതിന്റെ ഓർമയ്ക്കായുള്ള പ്രത്യേക തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കും കേന്ദ്ര നിയമ മന്ത്രി രവിശങ്കർ പ്രസാദ് സുപ്രീംകോടതി ഹൈക്കോടതി ജഡ്ജിമാർ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാനി തുടങ്ങിയവരും പങ്കെടുക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോവിഡ് പ്രതിസന്ധിയിൽ നിന്നുള്ള കരകയറ്റത്തിന് നിക്ഷേപത്തിന് ഊന്നൽ നൽകി ഇന്തൃ ബജറ്റ് അവതരിപ്പിച്ചതിനെ ട്രസ്സ് അഭിനന്ദിച്ചു കോവിഡ് വാക്സിൻ രംഗത്തടക്കം ഇന്ത്യയുമായി കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ ബ്രിട്ടൻ ആഗ്രഹിക്കുന്നതായി അവർ പറഞ്ഞു നിക്ഷേപം അടിസ്ഥാന സൌകര്യം ഇൻഷുറൻസ് മേഖലകിളിൽ സഹകരണം ശക്തമാക്കാമെന്ന് നിർമ്മല സീതാരാമൻ നിർദ്ദേശിച്ചു ബജറ്റ് മുന്നോട്ടു വയ്ക്കുന്ന പരിഷ്ക്കരണങ്ങൾ അവർ എടുത്തുകാട്ടി

ഇരുമ്പ് സ്റ്റീൽ തുടങ്ങിയവയുടെ വില വർധിച്ച സാഹചര്യത്തിൽ തിരഞ്ഞെടുത്ത ഉത്പന്നങ്ങൾക്ക് കസ്റ്റംസ് തീരുവ കുറച്ചതും തുകൽ വസ്ത്ര കരകൌശല വൃവസായികൾക്ക് ഇൻസെന്റീവ് നൽകുന്നതുമടക്കം നിരവധി നടപടികളാണ് സൂക്ഷ്മ ഇടത്തര ചെറുകിട സംരംഭമേഖലയെ സഹായിക്കാൻ കേന്ദ്രം കൈക്കൊണ്ടിട്ടുള്ളത്

ലോകത്തെയാകെ ബാധിച്ച് ക്ടോപിഡ് മഹാമാരിയിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ടവുരോട്ട് ഇരു മന്ത്രിമാരും അനുകമ്പ പ്രകടിപ്പിച്ചുകൊണ്ടാണ് യോഗമാരംഭിച്ചത് വിനോദസഞ്ചാര മേഖലയിലുായ ഇടിവ് നേരിടാൻ പരസ്പര സഹകരണത്തോടെയുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് മന്ത്രിമാർ എടുത്തുപറഞ്ഞു കോവിഡ് മഹാമാരി നേരിടുന്നതിനൊപ്പം മറ്റ് രാജ്യങ്ങൾക്ക് മരുന്നടക്കമുള്ള സഹായമെത്തിക്കാൻ പ്രധാനമന്ത്രി കാണിക്കുന്ന ശുഷ്കാന്തിയെ ശ്രീ സിംഗ് പ്രശംസിച്ചു

ആന്ധ്രാപ്രദേശ് അസം ഹിമാചൽ പ്രദേശ് കേരളം മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാൻഡ് പഞ്ചാബ് സിക്കിം തമിഴ്നാട് ത്രിപുര ഉത്തരാഖണ്ഡ് പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങൾക്കാണ് ഫണ്ട് നൽകിയത്

ടെലഫോൺ കണക്ഷൻ വഴിയുള്ള ഇന്റർനെറ്റ് സേവനങ്ങൾക്കുള്ള നിയന്ത്രണവും നീക്കിയെന്ന് ജമ്മുകശ്മീർ സർക്കാർ വക്താവ് രോഹിത് കൻസാൽ അറിയിച്ചു

ഇന്റ്ലെ രാത്രി കൊൽക്കത്തയിലെത്തിയ അദ്ദേഹം ഇന്ന് സഹാപൂർ ഗ്രാമത്തിൽ കർഷകർക്കൊപ്പം ഉച്ചഭക്ഷണം കീഴിക്കും റോഡ്ഷോയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം തുടൂർന്ന് നാദിയ ജില്ലയിൽ ബിജെപിയുടെ പരിവർത്തൻ യാത്ര ഉദ്ഘാട്ന്റ് ചെയ്യും

റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ മുഖ്യവിമർശകനായ അലക്സി നവാൽനിയെ ജയിൽ മോചിതനാക്കാൻ ആവശ്യപ്പെട്ടുള്ള അനധികൃത റാലിയിൽ പങ്കെടുത്തിന്റെ പേരിലാണ് നടപടി

സർക്കാരിന്റെ നൂറ്ദിന കർമ്മപരിപാടികളിൽ ഉൾപ്പെടുത്തി ഇന്ന് രാവിലെ പത്തിന് വീഡിയോ കോൺഫറൻസിങ് വഴിയാണ് ഉദ്ഘാടനം

വിഷുവിന് മുമ്പ് മുഴുവൻ പെൻഷൻ വിതരണം ചെയ്യുന്നതിലൂടെ ഒരു മാസത്തെ പെൻഷൻ മുൻകൂറായി ലഭിക്കും

അപർണ റോയിയും ടി

ജോസഫുമാണ് കേരളത്തിന്റെ ക്യാപ്റ്റൻമാർ

ടെസ്റ്റ് കരിയറിലെ നൂറാം മത്സരത്തിൽ പുറത്താകാതെ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ ജോ റൂട്ടിന്റെ പ്രകടനമാണ് ഇംഗ്ലണ്ടിന് കരുത്തുപകർന്നത്

പി രാമകൃഷ്ണൻ കോഴിക്കോട് പേരാമ്പ്ര മിനി സിവിൽ സ്റ്റേഷനിലെ കരിയർ ഡെവലപ്മെന്റ് സെന്ററിൽ നിർവ്വഹിക്കും